പാകിസ്ഥാനിലെ നൻകാന സാഹിബ് ഗുരുദാരയിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു

മൂവായിരം സൈനികള്ളി കൂടി അമേരിക്ക മധ്യേഷ്യയിലേക്ക് അയച്ചു

മൈതാനത്ത് ഇന്ന് തുടക്കമാകും

ഗുരുദാരയിൽ സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പാക്കാൻ പാകിസ്ഥാൻ നടപടി എടുക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു

സംഘടിച്ചെത്തിയ നിരവധി പേർ ഗുരുദാരയിലേക്ക് കല്ലെറിഞ്ഞു

നൻകാന ഗുരുദാരയും പരിസരവും സംരക്ഷിക്കാനാവശ്യമായ എല്ലാ നടപടികളും പാകിസ്ഥാൻ സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു

മഞ്ഞുകാലത്ത് വ്യോമമാർഗ്ഗമാണ് സാധനങ്ങൾ ലേ യിൽ എത്തിക്കാറുള്ളത് കാർഗോ സർവ്വീസ് വഴി സാധനങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്

ലേയിൽ കൌൺസിൽ നടത്തുന്ന സൂപ്പർ ബസാറിൽ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുസ്തകോൽസവത്തിൽ ഉയർത്തുന്ന സന്ദേശം ഗാന്ധി എഴുത്തുകാരുടെ എഴുത്തുകാരൻ എന്നാണ് ഗാന്ധിജിക്ക് ഇന്ത്യൻ സാഹിത്യത്തിലുള്ള സ്വാധീനവും എഴുത്തുകാരൻ എഡിറ്റർ മാധ്യമപ്രവർത്തകൻ പ്രസാധകൻ ആശയ പ്രചാരകൻ എന്നീ നിലകളിൽ ഗാന്ധിജിയെക്കുറിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള എഴുത്തുകാർ ശ്രദ്ധ പതിപ്പിക്കുന്നതുമാണ് ഈ സന്ദേശം മുന്നോട്ട് വയ്ക്കാൻ കാരണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്നൂതന ആശയങ്ങളുടെ രൂപീകരണം അവയുടെ പേറ്റന്റ് സ്വന്തമാക്കൽ ഉല്പാദനം പുരോഗതി എന്നീ നാല് നടപടികളിലൂടെ ഇത് ഉറപ്പുവരുത്ത്ണ്മെന്നും പ്രധാനമന്ത്രി ശാസ്ത്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു

ഇന്ത്യയുടെ വളർച്ച രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക് മേഖ്ലകളുടെ പുരോഗതിയെ ആശ്രയിച്ചാണെന്നും ശ്രീ

സുസ്ഥിരവും പ്രകൃതി സൌഹൃദവുമായ ഗതാഗത ഊർജ്ജ സംഭരണ മാർഗങ്ങൾക്കായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാർഗരേഖ ഇന്ത്യ തയ്യാറാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പരിസ്ഥിതിയെ സംരക്ഷിക്കാനായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞു ജൽ ജീവൻ പദ്ധതിയുടെ ശക്തി സാങ്കേതിക വിദ്യയാണെന്നും ജല പുനഃചംക്രമണത്തിനായി ചെലവു കുറഞ്ഞതും മെച്ചപ്പെട്ടതുമായ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ശാസ്ത്രജ്ഞർക്കുണ്ടെന്നും ശ്രീ

ദേശീയ വർക്കിങ് പ്രസിഡന്റ് ജെ

നിയമത്തിലൂടെ ആരുടേയും ഒരു അവകാശവും നഷ്ടമാകുന്നില്ലെന്ന് ശ്രീ

അയൽരാജ്യങ്ങളിൽ നിന്ന് എത്തി അഭയാർത്ഥികളായി കഴിയുന്നവർക്ക് മനുഷ്യത്വപരമായ പിന്തുണ നൽകുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ലോക ശ്രദ്ധയാകർഷിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ശ്രീപദ് നായിക് പറഞ്ഞു ഗോവയിൽ പൌരത്വ നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു

ഇന്നലെ രാവിലെയാണ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ ദൌത്യസേന ഇറാഖിൽ വച്ച് ഖാസിം സുലൈമാനിയെ വധിച്ചത്

ബാഗ്ദാദിലെ ഇറാൻ പിന്തുണയുള്ള ഭീകരതാവളങ്ങൾ അമേരിക്ക തകർത്തതിന്റെ തൊട്ടടുത്ത ദിവസം ബാഗ്ദാദിലെ അമേരിക്കൻ എംബസി ആക്രമിക്കപ്പെട്ടു ഇറാൻ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്ന വാർത്തകൾക്കിടെയാണ് പുതിയ സേനാ വിന്യാസം കഴിഞ്ഞ മേയ് മാസത്തിൽ പതിനാലായിരം സൈനികരെ യു

മുതിർന്ന സേനാ തലവനെ വധിച്ചതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിട്ടുണ്ട് ആക്രമണം നീതിപൂർവകമാണെന്ന് യു

മേഖലയിലെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും പോംപിയോ ലോകനേതാക്കളോട് വിശദീകരിച്ചു

ഒരു റിപ്പോർട്ട്

കൊമ്പെടുക്കുന്നതിനായാണ് നായാട്ടുകാർ വ്യാപകമായി ഇവയെ കൊലപ്പെടുത്തുന്നത് കഴിഞ്ഞവർഷം ഘോലഗട്ടിലും വിശ്വനാഥിലുമായാണ് മുന്നെണ്ണത്തിന്റെ ജഡങ്ങൾ കണ്ടെത്തിയതെന്ന് കാസിരംഗ ഡയറക്ടർ പി

കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി അസം മുഖ്യമന്ത്രി പ്രത്യേക താത്പര്യമെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു

നാഗ്ഗോൺ സോണിത്പൂർകർബാ അൻഗ്ലോങ് ജില്ലകളിൽ കാണ്ടാമൃഗവേട്ട ഇത്ത്വ്ണ ഉണ്ടായില്ല

യാത്രക്കാർക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാവുന്നതാണ് ഈ നമ്പർ ട്രെയിൻയാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റ നമ്പറിൽ അറിയാം എന്നതും യാത്രക്കാർക്ക് നേട്ടമാണ്

എല്ലാ മൊബൈൽ ഫോണുകളിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുമെന്നും റെയിൽവേ അറിയിച്ചു

വ്യോമയാന അഴിമതി അന്താരാഷ്ട്ര വിമാനക്കമ്പനികൾക്ക് എയർ സ്ലോട്ടുകൾ അനുവദിച്ച് നൽകുന്നതിലെ ക്രമക്കേട് എന്നിവ വഴി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഗവൺമെന്റിന് സംഭവിച്ചതായി ആരോപിച്ചുള്ള കേസിലാണ് എൻഫോഴ്സ്മെന്റ് നടപടി

അടുത്ത ഡൽഹി നിയമസഭ തെരഞ്ഞെടുപ്പിൽ ദിവ്യാംഗരുടെ പരമാവധി പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും ഇദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷ് ഹിന്ദി എന്നീ രണ്ട് ഭാഷകളിൽ ഹെൽപ് ലൈൻ രജിസ്ട്രേഷൻ നടത്താം

ഇതോടൊപ്പം ദിവ്യാംഗരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനവും പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്ട്

മാധ്യമവാർത്തകളെ തുടർന്ന് വിഷയത്തിൽ സ്വമേധയാ ക്കേസെടുത്ത കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് നാലാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചു